ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് രണ്ട് സ്വർണം മൂന്നാം ന് ദിനമായ ഇന്ന് മെഡൽ പ്രതീക്ഷകളോടെ ഗുസ്തി ഷൂട്ടിംഗ് താരങ്ങൾ കളത്തിലിറങ്ങും

തുടരാൻ ഇന്ത്യയും ജപ്പാനും തീരുമാനിച്ചു തീരുമാനം ന്യൂഡൽഹിയിൽ നടന്ന് പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ

ഇന്നലെയും ഇന്നും പൊതുവെ മഴ കുറവായിരുന്നതിനാൽ വെളളക്കെട്ടും ഡാമുകളേക്കുള്ള നീരൊഴുക്കും നദികളിലെ ജലനിരപ്പും താഴുകയാണ്

യിട്ടുണ്ട്

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർഥനയെ തുടർന്നാണ് നികുതിയിളവ് നൽകിയത് കേരളത്തിന്റെ എന്ത് ആവശ്യത്തിലും കേന്ദ്രം ഒപ്പമുണ്ടെന്ന് ധനമന്ത്രി പിയുഷ് ഗോയൽ പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് സൈന്യത്തിന്റെ മെഡിക്കൽ ടീം പ്രവർത്തനം തുടരുമെന്ന് കരസേന ദക്ഷിണ മേഖലാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഡി ആർ സോനി തിരുവനന്തപുരത്ത് അറിയിച്ചു

വായ്പാ തിരിച്ചടവ് കാലാവധി അഞ്ച് വർഷത്തേക്ക് പുനക്രമീകരിക്കാനും ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചു

ഇന്നു വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം

നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഗവൺമെന്റ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നദീതീരങ്ങളിലുള്ള നൂറുകണക്കിന് കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

നക്സൽ ബാധിത മേഖലകളിൽ വൈകുന്നേരം നാല് മണിക്കുശേഷം എടിഎമ്മിൽ പണം നിറയ്ക്കരുതെന്നും മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു പണം കൈകാരൃം ചെയ്യുന്ന പ്രൈവറ്റ് ഏജൻസികൾ ഉച്ചയ്ക്കുമുൻപായി ബാങ്കുകളിൽ നിന്ന് പണം ശേഖരിക്കുകയും സുരക്ഷാ സംവിധാനമുള്ള വാഹനങ്ങളിൽ അവ കൊണ്ടുപോകുകയും വേണം ആയുധധാരികളായ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പം ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു അടുത്തിടെ പണം കൊണ്ടുപോകുന്ന വാനുകൾക്കും എടിഎമ്മുകൾക്കും നേരെ നടന്ന ആക്രമണങ്ങളും മറ്റ് ആഭ്യന്തര തട്ടിപ്പുകളും കണക്കിലെടുത്ത് നടപ്പാക്കുന്ന ഈ പുതിയ സംവിധാനങ്ങൾ അടുത്ത വർഷം ഫെബ്രുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വരും

സംസ്ഥാനത്തിൽ പ്പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇ നോമിനേഷൻ സമർപ്പിക്കാമെന്ന കൽക്കട്ട ്ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിച്ചത് ഹർജിയിൽ ഒരാഴ്ചയ്ക്കകം വിധി പുറപ്പെടുവിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു

സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനുള്ള ഒരു ദേശീയ പദ്ധതി ആറ് മാസത്തിനകം തയ്യാറാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു നാല് മാസത്തിനകം വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജഡ്ജുമാരായ വൻവിൽക്കർ എ എം ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു

മയക്ക് മരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറൽ ഈ വിപത്തിനെതിരെ പോരാടുന്നതിന് തന്ത്രങ്ങൾ മെനയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മേൽനോട്ടത്തിൽ നടക്കും സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കുടിക്കാഴ്ച നടത്തി